ട്രിപ്പിൾ ലോക്ഡൌണിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ട് പൂന്തുറയിൽ പ്രതിഷേധം ജനങ്ങൾ വിലക്ക് ലംഘിച്ച് റോഡിലിറങ്ങി

അന്വേഷണം ദേശ്ലീയ് അന്വേഷണ ഏജൻസിക്ക്

സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്തി രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത പ്രതിഷേധം

പൂന്തുറയിൽ ജൂള്വ്ുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ പ്രതിഷേധിക്കുന്നു

കുമരിചന്ത പൂന്തുറ മേഖലകളിലുണ്ടായ കോവിഡ് ക്ലസ്റ്ററുകളാണ് തലസ്ഥാനത്തെ സമൂഹ വ്യാപനത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത്

അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം പൊലീസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ അവഗണിച്ച് സ്ത്രീകളടക്കം നൂറ് കണക്കിനാളുകളാണ് തെരുവിലിറങ്ങിയത് റിവേഴ്സ് ക്വാറന്റൈൻ നടപ്പാക്കാനുള്ള തീരപ്രദേശത്ത് ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പ്രായോഗിക നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വൃക്തമാക്കിയിട്ടുണ്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയശേഷം റിവേഴ്സ് ക്വാറന്റൈൻ ആവശ്യമുള്ളവരെ പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സന്നദ്ധമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു പൂന്തുറയിൽ രോഗം പടർന്നത് ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണെന്ന് കരുതുന്നതായി ആരോഗ്യൂമുന്തി കെ

ഒരാളിൽ നിന്ന് ഒരുപാട് പേരിലേക്ക് രോഗം പടരുന്ന സാഹചര്യത്തിൽ വീടാണ് ഏറ്റവും സുരക്ഷിത കേന്ദ്രമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുമായി ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു

ഐ എ അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ഇത്തരത്തിലുള്ള ആസൂത്രിത കള്ളക്കടത്തുകൾ രാജ്യ സുരക്ഷയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം വൃക്ത്രമാക്കി സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്റ് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമൃത്തിക്ക് കത്ത് അയച്ചിരുന്നു

കണ്ണൂർ പിണറായിയിൽ മുഖ്യമന്ത്രിയുടെ വീടിനു നേരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി

ക്കുക്കുക കോവിഡ് കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ കോവിഡ് ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികളുടെ സഹകരണം തേടുന്നതിൻറെ ഭാഗമായി ആശുപത്രി ഉടമകൾ ഐ

വൈകിട്ട് കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരായ ഇ

കകകകക കണ്ടെയിൻമെന്റ് സോൺ എറണാകുളം എറണാകുളം ജില്ലയിൽ ആലുവ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലെ മൂന്ന് ഡിവിഷനുകളെയും എളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളെയും കൊച്ചി കോർപ്പറേഷൻ രണ്ടാം വാർഡിലെ അൽബുറാക് മാർക്കറ്റിനെയും കണ്ടെയ്ൻമെൻറ് സോൺ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു

കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന് കർശനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഉത്തരവ്

പട്ന എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മനുഷ്യരിൽ വാക്സിൻ പരീക്ഷണം നടത്തുന്നത്

സ്വർണ വിലയിൽ മാറ്റമില്ല

ഐ എ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്രസർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി കെ

സി

എ അന്വേഷണത്തിന് പുറമേ സി ബി ഐ റോ എന്നീ അന്വേഷണങ്ങൾക്കൂടി പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും തയ്യാറാകണം സ്വർണ്ണക്കട്ടത്തിന് പിന്നിൽ വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ശ്രീ മുല്ലപ്പള്ളി പറഞ്ഞു

ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൌൺസിലിന്റെ വെബ് സൈറ്റിലാണ് ഫലം പ്രസിദ്ധീകരിക്കുന്നത്

എസ് ആയി ഫലം ലഭിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ വെബ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്

ഇ ന്ധന വില വർധന പിൻവലിക്കണ്ട്മെന്നും ഓട്ടോ ടാക്സി നിര ക്ക് വർധിപ്പിക്കണമെന്നും സ്ബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകണമെന്നും ആവശ്യഉപ്പിട്ടാണ് പണിമുടക്ക്

ഇതുവരെ ലോകത്തൊട്ടാകെ അഞ്ചര ലക്ഷത്തിലധികം പേർ മരിച്ചു

പുലർച്ചെ ഉത്തർപ്രദേശിലെ കാൺപൂരിന് സമീപം ഭോട്ടിയിൽ ദൂബെയുമായി പോയ പൊലീസ് വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ വെടി വയ്ക്കുകയായിരുന്നുവെന്ന് പൊലീസ് അറിയിച്ചു

ജീവനക്കാർക്കും വിരമിച്ചവർക്കും ചികിത്സ ലഭ്യമാക്കുന്നതിന് കണ്ണൂരിൽ സി ജി എച്ച് എസ് വെൽനസ് സെന്റർ ഉടൻ പ്രവർത്തനക്ഷമമാകും കേന്ദ്രത്തിൽ ഡോക്ടർമാർ ചുമതലയേറ്റു

മൂവായിരത്തോളം പേർ ഈ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് കണക്കാക്കുന്നത്

ഓൺലൈനായി ഏകജാലക സംവിധാനത്തിൽത്തന്നെയാകും പ്രവേശന നടപടികൾ അപേക്ഷിക്കാൻ കൂടുതൽ ദിവസം അനുവദിക്കും

മണി വി